പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫ്രൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും

പൊതുഭാവിയുടെ പുനർനിർവ്വചനം എല്ലാവർക്കും സുരക്ഷിതവും സംരക്ഷിതവുമായ പരിസ്ഥിതി എന്നതാണ് ഇത്തവണത്തെ ഉച്ചകോടിയുടെ വിഷയം

കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ വിവിധ ഗവൺമെന്റുകൾ പ്രമുഖ വ്യവസായികൾ അക്കാദമിക വിദഗ്ദ്ധർ ശാസ്ത്രജ്ഞർ യുവാക്കൾ തുടങ്ങിയവരെ അണിനിരത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം പരിസ്ഥിതി വനം കാലാവസ്ഥ പുനരുപയോഗ ഊർജ്ജ ഭൌമ മന്ത്രാലയങ്ങൾ ഉച്ചകോടിയുടെ പ്രധാന പങ്കാളികളാണ് ഗയാന പ്രസിഡന്റ് ഡോ മുഹമ്മദ് ഇർഫാൻ അലി പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മറാപ്പെ മാലദ്വീപ് പീപ്പിൾസ് മജ്ലിസ് സ്പീക്കർ മുഹമ്മദ് നഷീദ് ഐക്യരാഷ്ട്ര സഭ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അമിന ജെ മുഹമ്മദ് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും

ലോകത്ത് റോഡപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്തെന്ന് അന്താരാഷ്ട്ര റോഡ് ഫെഡറേഷൻ ഇന്ത്യൻ ചാപ്റ്റർ സംഘടിപ്പിച്ച വെബിനാർ പരമ്പര ഉദ്ഘാടനം ചെയ്യവെ ഗഡ്കരി പറഞ്ഞു

ഇന്ത്യയിലെ റോഡ് സുരക്ഷാ വെല്ലുവിളികൾ കർമ്മപരിപാടി തയ്യാറാക്കൽ എന്ന ആശയത്തിലാണ് വെബിനാർ പരമ്പര രുര ചലച്ചിത്ര കാഴ്ചയുടെ രാജ്യാന്തര മേളക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവും

കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് രജ്ന കെ ആസാദ്

നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ആറിന് പ്രദർശനം തുടങ്ങും ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനക്ക് പുരസ്കാരം നേടിയ ഫ്രഞ്ച് സംവിധായകൻ ജീൻ ലൂക്ക് ഗൊദാർദ് ന് വേണ്ടി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് ഏറ്റുവാങ്ങും

ഇത്തവണത്തെ മേളയിൽ കൊവിഡ് മഹാമാരിയെ അതിജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സിഗ്നേച്ചർ ഫിലിമും പ്രദർശിപ്പിക്കും

പങ്കെടുക്കുന്നവർക്ക് കൊവിഡ് ആന്റിജൻ ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്

കോട്ടയത്തെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആന്റ് ആർട്സിനെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരുമായി തിരുവനന്തപുരത്ത് ആശയ വിനിമയം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വീഡിയോ നിർമാണത്തിൽ പരിശീലനം നൽകണമെന്ന സ്കൂൾ വിദ്യാർത്ഥിയും പരിശോധിക്കാമെന്നും ഏത് ക്ലാസ് മുതൽ ഇത് ആരംഭിക്കണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധരുമായി ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ അതീവ ഗൌരവത്തോടെ കണ്ട് പൊലീസും സാമൂഹ്യനീതി വകുപ്പും കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കെ ഫോണുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ നടക്കാനിരിക്കുക യാണെന്നും പിണറായി വിജയൻ പറഞ്ഞു രുമ കൊവിഡ് പ്രതിസന്ധിഘട്ടത്തിലും ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ടവും ന്യൂ മാഹി ബോട്ട് ടെർമിനൽ ആന്റ് വാക്ക് വേയും ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊവിഡ് പ്രതിസന്ധി ഘട്ടത്തിൽ പ്രധാന വരുമാന സ്രോതസ്സ് എന്ന നിലയ്ക്കാണ് ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു നൽകിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് തോണിക്കടവ്

ദേഴ ഇടുക്കി രാമക്കൽമേട് രണ്ടാംഘട്ട ടൂറിസം പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു

രും ടൂറിസം വകുപ്പ് തിരൂർ തുഞ്ചൻപറമ്പിൽ നടപ്പാക്കിയ നവീകരണ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു തുഞ്ചൻപറമ്പിൽ എഴുത്തുപുര നിർമാണത്തിന്റെ ജോലികൾ പുരോഗമിക്കുന്നുണ്ട്

വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ രും യുഡിഎഫ് അനുകൂല സർവീസ് സംഘടനകളുടെ ആഹ്വാന പ്രകാരം ഒരു വിഭാഗം ഗവൺമെന്റ് ജീവനക്കാരും അധ്യാപകരും ഇന്ന് പണിമുടക്കും ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കണ മെന്നും ഉൾപ്പെടെ ആവശ്യങ്ങളുന്നയിച്ചാണ് പണിമുടക്ക് നോട്ടീസ് നൽകിയത് പണിമുടക്ക് നേരിടാൻ ജീവനക്കാർക്ക് അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ അവധി നൽകരുതെന്ന് ഗവൺമെന്റ് നിർദ്ദേശം നൽകി ഓഫീസുകൾക്ക് സംരക്ഷണം നൽകണമെന്ന് പൊലീസിനോടാവശ്യപ്പെട്ടു ഓഫീസുകളിലെ ഹാജർ നില പൊതുഭരണ വകുപ്പിന് അയച്ചുകൊടുക്കാനും നിർദേശമുണ്ട് രുര സംസ്ഥാന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ബിജെപി ഇന്ന് സംസ്ഥാനവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മറ്റി കലക്ട്രേറ്റ് മാർച്ച് നടത്തുമെന്ന് ജില്ലാ പ്രസിഡൻറ് വി

പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എംടി രമേശ് ഉദ്ഘാടനം ചെയ്യും

ഐ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ചേരും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി നിർണയം പ്രചാരണ പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ചചെയ്യാനാണ് നേത്വയോഗങ്ങൾ ചേരുന്നത് രും ഐഎസ്എൽ ഫുട്ബോളിൽ മറുപടിയില്ലാത്ത രണ്ടു ഗോളുകൾക്ക് എ ടി കെ മോഹൻബഗാൻ ബംഗലുരു എഫ് സി യെ തോൽപിച്ചു കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ ആദ്യമായാണ് ബംഗളുരുവിന്റെ പരാജയം ഇന്നു വൈകിട്ട് ഏഴരക്ക് ചെന്നൈയിൻ എഫ് സി ജംഷഡ്പൂർ എഫ് സി യെ നേരിടും രും ബംഗലുരുവിൽ കാഴ്ച പരിമിതരുടെ നാഗേഷ്ട്രോഫി ക്രിക്കറ്റി ടൂർണമെന്റിൽ കേരളം തുടർച്ചയായ രണ്ടാം ജയം സ്വന്തമാക്കി

മൂന്നാം മത്സരത്തിൽ കേരളം ഉത്തർപ്രദേശിനെ നേരിടും രും ഇടുക്കി തൊടുപുഴ മുട്ടത്തെ സ്പൈസസ് പാർക്ക് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു

മന്ത്രി എം എം മണിയും ചടങ്ങിൽ പങ്കെടുത്തു രുഭ ഇടുക്കി വന്യജീവി സങ്കേതത്തിന് ചുറ്റും പരിസ്ഥിതിലോല മേഖല തീരുമാനിക്കുമ്പോൾ ജനവാസമേഖലകളും കൃഷിയിടങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് വെള്ളാപ്പാറയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ നിർദേശം ഉയർന്നു അഞ്ചുരുളി കല്യാണതണ്ട് വിനോദസഞ്ചാര പ്രദേശങ്ങളെ മേഖലയിൽ നിന്ന് ഒഴിവാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു